സേവ ശുചിത്വം തന്നെ സേവനം പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു

ദൈനംദിന ജീവിതചരൃയിൽ ഉൾപ്പെടുത്തേണ്ട ശീലമാണ് ശുചിത്വമെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാല് വർഷം മുമ്പ് തുടങ്ങിവച്ച ശുചിത്വ മുന്നേറ്റം ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് വരെയാണ് സ്വച്ഛത ഹി സേവ പ്രചാരണ പരിപാടി നടക്കുന്നത്

രാജ്യത്തെ വൈവിധ്യമാർന്ന ജനങ്ങളുടെ വിവിധ പ്രതിനിധികളായ ജവാന്മാർ വിദ്യാർത്ഥിക്ക്ൾ കർഷക സംഘങ്ങൾ ആത്മീയ നേതാക്കളായ സദ്ഗുരു ജഗ്ഗീറ്റിൽസുദേവ് ശ്രീശ്രീരവിശങ്കർ മാതാഅമൃതാനന്ദമയി ഇക്ബാൾ പ്പിക്ക് സരാർ ചിസ്റ്റി നടൻ അമിതാഭ് ബച്ചൻ രത്തൻടാറ്റ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആതിഥ്യനാഥ് തുടങ്ങിയുവരുമായി വീഡിയോകോൺഫറൻ സിംഗിലൂടെ പ്രധാനമന്ത്രി സംസാരിച്ചു ദൈനംദിന ജീവിതത്തിൽ പുലർത്തേണ്ട സ്വഭാവരീതിയാണ് ശുചിത്വമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

വയറിളക്കരോഗങ്ങൾ ഇതുവഴി രാജ്യത്ത് കുറഞ്ഞിട്ടുണ്ട്

ഇതിനായി ഗവൺമെന്റ് ശക്തമായ പരിപാടികൾ നടത്തിവരികയാണ് ചരിത്രത്തിൽ സ്വച്ഛ് ഭാരതിനെപ്പറ്റി എഴുതപ്പെടുമ്പോൾ സ്വച്ഛഗ്രാഹികൾ എന്ന സേവകരെക്കുറിച്ച് സ്വർണ്ണലിപിയിലായിരിക്കും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഈ പദ്ധതിയിൽ സ്ത്രീകളുടെ സംഭാവന നിർണ്ണായകമാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു

ശുചിത്വകാര്യത്തിൽ ശ്രദ്ധേയമായ പ്രവൃത്തികളാണ് ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഹരിയാനയിലെ റവാരി റെയിൽവേ സ്റ്റേഷനിലെ സംഘത്തോട് സംസാരിക്കുകയായിരുന്നു ശ്രീ

ഗുരുനാനാക്ക് ലക്ഷക്കണക്കിന് അനുയായികൾക്ക് നേരായ വഴി കാട്ടിയതായും പ്രധാനമന്ത്രി പറഞ്ഞു

സാമൂഹ്യമാറ്റത്തിന്റെ അംബാസഡർമാരാണ് ചെറുപ്പക്കാരെന്ന് അസമിലെ യുവാക്കളോട്ട് പ്രധാനമന്ത്രി പറഞ്ഞു പ്രദേശത്ത് ദുരന്തമുണ്ടാകുമ്പോഴും അതിർത്തി കാക്കുന്നതിന് സൈനികർ ഒപ്പമുണ്ടാകുമെന്ന് കശ്മീരിക്കല് ലേയിൽ സൈനികരോട് പ്രധാനമന്ത്രി പറഞ്ഞു മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ആദിവാസി ഭൂരിപക്ഷ ദണ്ഡേവാഡ ജില്ലയിലാണ് ഛത്തീസ്ഘട്ടിലെ സ്വച്ഛതാ പ്രചാരണം പ്രധാനമന്ത്രി പ്രീഡിയോ കോൺഫറൻസിങിലൂടെ നിർവഹിച്ചത് ഗ്രാമത്തിൽ ശുചിത്വം നിലനിർത്തുന്നതിന് ഗ്രാമീണർ നടത്തുന്ന സേവനം പ്രധാനമന്ത്രി പ്രശംസിച്ചു

സംസ്ഥാനത്ത് ഓരോ വീട്ടിലും ശൌചാലയം ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് തന്റെ ഗവൺമെന്റ് എന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞു മധ്യപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഗർ ജില്ലയിലെ ഗ്രാമീണരുമായി സംവദിച്ചു സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ ബാബാസാഹിബ് അംബേദ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ശുചിയാക്കി വിദ്യാർത്ഥികളുമായി സംവദിച്ചു ന്യൂഡൽഹിയിലെ കൊണാർട്ട് പ്പെയയ്ഡിൽ ഡൽഹി ലഫ് ഗവർണർ അനിൽ ബയ്ജാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കിരൂൺ റിജിജു ലോക്സഭാ എം

മാന്പ്പ് വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവദേക്കർ ന്യൂനപക്ഷകാര്യം മന്ത്രി മുഖ്താർ അവ്വൊഡ് നഖ്മി എന്നിവരും വിവിധ സ്ഥലങ്ങളിലായി പരിപാടിയിൽ പങ്കെടുത്തു

കൃഷി ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കൂടാതെ പ്രതിരോധ മേഖലയിലെ നിർമ്മാണം ശാസ്ത്ര സാങ്കേതികത ടൂറിസം മരുന്ന് വ്യവസായം എന്നീ മേഖലകളിലാണ് ഇരുരാജ്യങ്ങളും ബന്ധം ശക്തമാക്കുക ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവും സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസീസുവും തമ്മിൽ ബെൽഗ്രേഡിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം ഇരുരാജൃങ്ങൾക്കും താൽപരൃമുള്ള മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചതെന്ന് ഇരുവരും ചേർന്ന് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു

സെർബിയയിലെ ഇന്ത്യൻ വൃവസായികളുമായി ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി

ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സമിതിയിലെ അംഗങ്ങൾ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക രൂപയുടെ ഇടിവ് പെട്രോൾ ഡീസൽ വില വർദ്ധന സാമ്പത്തിക കമ്മി എന്നീ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചചെയ്യുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി ഇന്നലെ ശ്രീ

ലോക സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യൻ സമ്പദ് വ്യവ്സ്ഥ്ക്യ ബാധിക്കുന്ന മറ്റു ഘടകങ്ങളെയും കുറിച്ച് ആ

വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ഞെരുക്കൂവ്ും രൂപയുടെ മൂല്യത്തിലെ ഇടിവും പരിശോധിക്കുന്നതിനായി ക്കുവൺമെന്റ് ഘട്ടംഘട്ടമായുള്ള നടപടികൾ കൈക്കൊണ്ട് വിരികയാണ്

പെട്രോളിയം ഉൽപന്നങ്ങൾ എൻജിനീയറിംഗ് ഫാർമസി രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി എന്നിവയിലുണ്ടായ ആരോഗൃകരമായ വളർച്ചയാണ് ഇതിനു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്

ഇവരിൽ ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ മുതിർന്ന കമാൻഡറും ഉൾപ്പെടുന്നു എന്ന് ആകാശവാണി ശ്രീനഗർ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

സംഭവസ്ഥലത്ത് നിന്നും ആയുധങ്ങളും മറ്റും കണ്ടെടുത്തു പിന്നീട് പ്രദേശവാസികളും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു സംഭവത്തെത്തുടർന്ന് കുൽഗാമിലും പരിസരപ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

മുഖ്യമന്ത്രി മന്ത്രിമൂാർ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി മുംബ്ലൈയിൽ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തും കൂടാതെ മുതിർന്ന രാഷ്ട്രിയ നേതാക്കൾ വ്യവസായ പ്രമുഖർ നഗര ഗ്രാമ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പൂനൈയിൽ കഴിഞ്ഞ മാസം സാമ്പത്തിക വിദഗ്ദ്ധരുമായി കമ്മീഷൻ ചർച്ച നടത്തിയിരുന്നു

എസ് ആർ ഒയുടെ പി

ഇന്ത്യയുടെ വികസന യാത്രയിൽ പ്രവാസികളുടെ സ്ഥാനം നിർണ്ണായകമാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിദേശകാരൃ മന്ത്രി സുഷമാ സ്വരാജ് എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഈ മഹാ സമ്മേളനത്തിന്റെ വിജയത്തിനുള്ള നടപടി ക്രമങ്ങൾ ആരംഭിച്ചതായി ശ്രീ

രജൌരി ജില്ലയിലെ നൌഷേരാ മേഖലയിലാണ് നിയന്ത്രണരേഖയിൽ പാക്സൈന്യം ആക്രമണമുതിർത്തത് ഇന്ത്യൻ സൈനികർ തിരിച്ച് വെടിവെച്ചതായി പ്രതിരോധ വക്താവ് ആകാശവാണിയോട് പറഞ്ഞു പരിക്കേറ്റ സൈനികനെ ഹെലികോപ്റ്ററിൽ രക്ഷിച്ച് ഉധംപൂരിലെ ആർമി കമാൻഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു